കുത്തിവയ്പ്പിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നാളെ തുടക്കം കുറിക്കും

കേരള ബജറ്റ് ഇന്ന്

ഘട്ട ചർച്ച ഇന്ന് ക്രിയാത്മക നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നതായി കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ

സർക്കാർ സ്വകാര്യ മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ഈ ഘട്ടത്തിൽ മുൻഗണന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വികസിപ്പിച്ച ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ കോ വിൻ വാക്സിൻ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ തത്സമയ വിവരങ്ങളും ഗുണ്ടോക്താക്കളുടെ വിവരങ്ങളും ലഭ്യമാക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആദ്യ ഡോസ് എടുത്താലും സുരക്ഷിതരാണെന്ന ധാരണ വേണ്ടെന്നും രണ്ടാമത്തെ ഡോസ് എടുത്ത ശേഷം ഒരാഴ്ച കഴിഞ്ഞേ ആന്റിബോഡി രൂപപ്പെടൂവെന്നും മന്ത്രി വ്യക്തമാക്കി

കർഷക നേതാക്കളുമായി തുറന്ന മനസോടെ സംസാരിക്കാൻ ഗവൺമെന്റ് ക്രുക്കമാണെന്ന് കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ വ്യക്തിമാക്കി

ഏപ്രിൽ എട്ടുവരെയാണ് സമ്മേളനം ഇക്കുറി അഞ്ച് മണിക്കൂർ സഭ സമ്മേളിക്കും ചോദ്യോത്തര വേളയും ഉണ്ടാകും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകും സന്ദർശകർക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്

തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്

വോയ്സ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കേ സാമൂഹ്യസുരക്ഷയ്ക്ക് പ്രാധാന്യംനൽകുന്നതോടൊപ്പം അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നീദ്ദേശങ്ങളൂം ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

നികുതിഭാരമുണ്ടാകില്ലെന്നും ഇളവുകളുണ്ടാകുമെന്നും ധനമന്ത്രി സൂചനനൽകിയിട്ടുണ്ട് കോവിഡിനെതുടർന്ന് പ്രതിസന്ധിനേരിട്ട വ്യാപാരി സമൂഹത്തെ കരകയറ്റാനുതകുന്ന സമഗ്രപാക്കേജ് ബജറ്റിൽ പ്രതീക്ഷിക്കാം

പെൻഷൻപ്രായം കൂട്ടില്ല മലയോര ഹൈവേ വിഴിഞ്ഞം കോവളം ബേക്കൽ ഉൾനാടൻ ജലപാത അതിവേഗ റെയിൽപാത ക്രികൂടങ്ങിയവ പദ്ധതികൾ സംബന്ധിച്ചും പ്രഖ്യാപനമുണ്ടാകാൻ സ്സാധൃതയുണ്ട്

ടി

മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശക്തമായ തിരിച്ചുവരവാണ് കേരള സമ്പദ്ഘടനയിലുണ്ടാകുന്നത് ഇതിനെ ശക്തിപ്പെടുത്താനും കോവിഡനന്തര കേരളത്തിനു വഴിയൊരുക്കാനുമായിരിക്കും ഈ വർഷത്തെ ബഡ്ജറ്റ് ഊന്നൽ നൽകുകയെന്ന് മന്ത്രി പറഞ്ഞു

രാജ്യത്തെ ഏഴായിരത്തി അറുപത്തി നാല് ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെയാണ് ഈ നേട്ടം

ജീവീതം സ്നേഹം സ്നീത്ത് രാഷ്ട്രീയം തുടങ്ങി നാനാ വിഷയങ്ങളിലുള്ള ഈ കുറ്റലുകൾ പല ഇന്ത്യൻ ഭാഷകൾക്കൊപ്പം അന്താരാഷ്ട്ര ഭാഷകളില്ലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും തമിഴ് സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ തമിഴ്നാട് ഗവൺമെന്റ് ആദരിക്കാറുണ്ട്

പുനെയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്ന സാമ്പിളുകളിൽ മൂന്ന് പേർക്കു കൂടി ജനിതക മാറ്റം വന്ന വൈറസ് ബാധ സ്ഥിരീകരിച്ചു

മകരവിളക്ക് ദിനമായ ഇന്നലെ പ്രൂന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ചു തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ദീപാരാധന നടന്നു ഇക്കുറി കോവിഡിന്റെ പൃശ്ചാത്തലത്തിൽ മുൻകൂട്ടി അനുവാദം വാങ്ങിയ അയ്യായിരത്തോൾം പേർക്കാണ് പ്രവേശനം ലഭിച്ചത്